പ്രധാനമന്ത്രി നരേന്ദ്രിമോദി ഇന്ന് കേരളത്തിൽ

സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റന്റെ കാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ പി വി സിന്ധു ചൈനയുടെ കായ് യാന്യാനിനെ നേരിടും

ഇല്ക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് കേടുപറ്റിയ പ്പ് ഔളം് കേസ്സുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ പോളിങ് ബൂത്തുകളിലും വി വി പാറ്റ് സംവിധാനത്തോടു കൂട്ടീയ് വോട്ടിംഗ് മെഷീനുകളാണ് ഉപയോഗിച്ചത്

വൈകിട്ട് വ്യോമസേനയുടെ പ്രത്യേക വിമാന്നത്തിൽ കോഴിക്കോടെത്തുന്ന പ്രധാനമന്ത്രി കടപ്പുറത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയെ അഭിസംബോധന ചെയ്യും യോഗത്തിൽ സംബന്ധിക്കിൽ തിരുവനന്തപുരത്തെത്തും കേരളം കൂടാതെ മഹാരാഷ്ട്രിയിൽ അഹമ്മദ്നഗറിലെ മൂന്ന് പൊതുയോഗങ്ങളിലും ക്ർണാടകയിൽ ഗംഗാവതിയിലെ പ്രചാരണ പരിപാടിയിലും പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തമിഴ്നാട്ടിലെ മൂന്ന് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച കൊല്ലത്തെത്തും

എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കും

വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ വിവിധ തിരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്ത് വോട്ടർമാരുടെ പിന്തുണ തേടാനുള്ള ശ്രമത്തിലാണ്

ലോക്സഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് കമ്മീഷന്റെ അനുമതി തേടിയത് ജാമിയ മിലിയ ഇസ്താമിയ സർവ്വകലാശാല വൈസ് ചാൻസലറായി ശ്രീമതി നജ്മ അഖ്തറിനെയും മോത്തിഹാരിയിലെ മഹാത്മഗാന്ധി സർവ്വകലാശാല വൈസ് ചാൻസലറായി സഞ്ജീവ് കേന്ദ്ര ശർമ്മയെയും നിയമിച്ചതായി മന്ത്രാലയത്തിലെ മുതിർന്ന വർദ്ദയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു

ജാമിയ മിലിയ ഇസ്താമിയ സർവ്വകലാശാല വൈസ് ചാൻസലറാകുന്ന ആദ്യ വനിതയാണ് ശ്രീമതി അഖ്തർ വൈസ് ചാൻസലർ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മാതൃകാ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് ചൂർത്തിയായതായി നിലവിൽ മാനവ വിഭവശേഷി വികസന മന്ത്രാലയ്യിം ട്രിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതിനെ തുടർന്നാണ് നീയ്മുനങ്ങൾക്ക് കമ്മീഷൻ അനുമതി നൽകിയത്

ന്യൂഡൽഹിയിലെ വിവേകാനന്ദാ അന്താരാഷ്ട്ര ഫൌണ്ടേഷനിൽ തദ്ദേശീയ പ്രതിരോധ മേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഐക്യരാഷ്ട്രസഭയിലെയും മറ്റ് അന്താരാഷ്ട്ര വേദികളിലെയും സഹകരണം വർദ്ധിപ്പിക്കുന്നതും ഇതിലുൾപ്പെടുന്നു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വിദേശ മന്ത്രാലയതല ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി എ

ഇന്ത്യയും നെതർലന്റ്സും ബഹുമുഖ ബഡ്ഡിമാണ് പങ്കുവെയ്ക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്തിച്ചുനയിൽ പറഞ്ഞു രാഷ്ട്രീയ സാമ്പത്തിക് പ്പാണിജ്യ ശാസ്ത്രീയ സാംസ്കാരിക സഹകരണമുൾപ്പെടെയ്യുള്ള് ഉഭയകക്ഷി ബന്ധങ്ങൾ പുനരവലോകനം ചെയ്യാൻ ഇരു രാജ്യങ്ങളും ഈ അവസരം ഉപയോഗപ്പെടുത്തിയതായും പ്രസ്താവനയിൽ പറയുന്നു

ടി ടെക് സമ്മേളനത്തിൽ നെതർലന്റ്സ് പങ്കാളിയാകുന്നത് ഇന്ത്യ സ്വാഗതം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു

നിയന്ത്രണം പാലിക്കാൻ അമേരിക്ക സുഡാൻ സൈന്യത്തോട് നിരന്തരം ആവശ്യപ്പെടുന്നതായും ഗവൺമെന്റിൽ നൽകണമെന്നും സാധാരണക്കാരുടെ പ്രതീക്ഷകൾക്ക് ൌഇട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് റ്റോബ്പർട്ട് ്പല്ലാഡിനോ പറഞ്ഞു

ഉത്തര കൊറിയയുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കുള്ള സമാധാനപരമായ പരിഹാരം സാധ്യമാണെന്നും തന്റെ നയതന്ത്ര ഇടപെടലിലൂടെ ഇത് സാധ്യമാക്കാൻ ശ്രമിക്കുകയാണെന്നും ശ്രീ

നിലവിലെ ഉപരോധങ്ങൾ തുടരുമെന്നും എന്നാൽ വടക്കൻ കൊറിയയ്ക്കെതിരെ പുതിയ നടപടികൾ സ്വീകരിക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി

കഴിഞ്ഞ വർഷം ശ്രീ കിമ്മുമായി ട്രംപ് സിംഗ്ലപ്പൂരിൽ ചരിത്രപരമായ കൂടിക്കാഴ്ച നടത്തുകയും കഴിഞ്ഞ് കൃഷ്ണ്രുവരിയിൽ ഹനോയിയിൽ ഇരുവരും വീണ്ടും ക്ണ്ടുമുട്ടുകയും ചെയ്തതിനു പിന്നാലെയാണ് മൂന്നാമത്തെ കൂടിക്കാഴ്ച ഹനോയിയിലെ കൂടിക്കാഴ്ചയിൽ ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ വടക്കൻ കൊറിയയെ നിബന്ധിതമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു

എ

എ ഇ യുടെ മികച്ച പൈതൃകം പ്രാമാണ്യം ആധുനികതയോടൊപ്പം സാംസ്കാരിക സാഹിത്യ മികവുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുകയാണ് മേള ലക്ഷ്യംവെയ്ക്കുന്നത് ഇന്ത്യയുടെ സാന്നിധ്യത്തിലൂടെ സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നു ഇന്ത്യയും അറബ് അാഷ്ട്രങ്ങളും പങ്കിടുന്ന ബന്ധത്തെയും യു

ഇ യും ഇന്ത്യയും തമ്മിലുള്ള സൌഹൃദബന്ധത്തിനും അടിവരയിടുന്നതാണ് ഇന്തൃയെ വിശിഷ്ട അതിഥിയാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ് അണ്ടർ സെക്രട്ടറി പറഞ്ഞു

വൈദ്യൻ ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ ഫ്റ്രെസ്കാരത്തിന് അർഹയായി ലണ്ടൻ മേയർ പീറ്റർ എസ്ളിൻ സിറ്റി ഓഫ് ലണ്ടൻ കോർപ്പറേഷൻ പോളിസി അധ്യക്ഷ കാതറിൻ മക്ഗിന്നസ് എന്നിവരാണ് ശ്രീമതി ആലിസിനെ പുരസ്കാരത്തിന് ശുപാർശ ചെയ്തത് ഇന്നലെ ലണ്ടനിൽ നടന്ന ആദ്യ ഇന്ത്യ യു കെ ഇൻഷുറൻസ് സമ്മിറ്റിൽ ശ്രീമതി ആലിസ് പങ്കെടുത്തു

ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കലമെഡൽ നേടിയ താരം സൈനാ നെഹ്വാൾ രണ്ടാം സീഡ് താരം ജപ്പാന്റെ നൊസോമി ഒക്കുഹരയുമായി ഇന്ന് മത്സരിക്കും ഇന്നലെ പി വി സിന്ധുവും സൈനാ നെഹ്വാളും വനിതാ സിംഗിൾസ് ക്വാർട്ടർ കൈനലിലേക്ക് കടന്നു

കൊൽക്കത്തയിൽ രാത്രി എട്ടു മണിക്കാണ് മത്സരം കഴിഞ്ഞ രാത്രി ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നാല് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി